പി റിപ്പോർട്ട് ചെയ്തു

സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാ രുമായും വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസാരിച്ച അദ്ദേഹം ആൾക്കൂട്ട ചടങ്ങുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പങ്കുവെച്ചു മാസ്ക്കു കൾക്ക് അമിതവില ഈടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്ക ണമെന്ന് ഹർഷവർധൻ ആവശ്യപ്പെട്ടു

ദിനാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി പങ്കെടുക്കും രാജ്യത്തെ ഏഴ് പ്രധാനമന്ത്രി ഭാരതീയ ജൻഔഷധി പരിയോ ജന കേന്ദ്രങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദേശം ദൂരദർശനിലൂടെ സംപ്രേ ഷണം ചെയ്യും ജൻഔഷധി പദ്ധതിയുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന തിനുവേണ്ടിയാണ് മാർച്ച് ഏഴിന് രാജ്യത്ത് ജൻഔഷധി ദിവസമായി ആഘോ ഷിക്കുന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട അന്താരാഷ്ട്ര വനിതാദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും വൈകീട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വനി താരത്ന പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്യും രാത്രി പത്തിന് നിശാഗന്ധിയിൽ നിന്ന് കിഴക്കേകോട്ട ഗാന്ധിപാർക്കിലേക്ക് രാത്രിനടത്തവും സംഘടിപ്പിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇതോ ടൊപ്പം നൈറ്റ് ഷോപ്പിംഗും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും രാത്രിന ടത്തമുണ്ടായിരിക്കും നാളെ വനിതാപുലരി ആഘോഷങ്ങളോടെ വനിതാ വാരാചരണം സമാപിക്കും രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട അന്താരാഷ്ട്ര വനിതാദിനത്തോടനുബന്ധിച്ച് നാളെ എല്ലാ പഞ്ചായത്തു കളിലും പ്രത്യേക ഗ്രാമസഭകളും മഹിളാ സഭകളും സംഘടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേ ശിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട എന്റെ അവസരം എന്റെ അവകാശം എന്ന ആശയം മുൻനിർത്തി കുടും ബശ്രീയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്ത് പ്രത്യേക അയൽക്കൂട്ട യോഗങ്ങൾ സംഘടിപ്പിക്കും വൈകീട്ട് ഏഴ് മുതൽ പത്തുവരെ നടക്കുന്ന അയൽക്കൂട്ട യോഗങ്ങളിൽ രണ്ടരലക്ഷത്തിലേറെ വരുന്ന അയൽക്കൂട്ട വനി തകൾ പങ്കെടുക്കും

നാളെ രാവിലെ തിരുവന ന്തപുരത്തുനിന്ന് ഷൊർണ്ണൂരിലേക്ക് പോകുന്ന വേണാട് എക്സ്പ്രസ്സിന്റെ നിയന്ത്രണം എറണാകുളം മുതൽ വനിതകൾ ഏറ്റെടുക്കുമെന്ന് മന്ത്രി പറ ഞ്ഞു രദ്ദേഷ്ടങ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ബോധവത്കരണം അനിവാര്യമാണെന്ന് മന്ത്രി കെ

ബാലിശമായ അന്ധവിശ്വാസങ്ങൾ ഇന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ അ ന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുകയായി രുന്നു മന്ത്രി രദ്ദേഷ്ടങ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ പരിചയപ്പെടുത്തുകയാണ് ആകാശവാണി വാർത്തകൾ മണ്ണിനെ സ് നേഹിച്ച നജീമ ടീച്ചർ അന്തർദേശീയ അംഗീകാരങ്ങളുടെ നിറവിൽ ആണ് കേരള കാർഷിക സർവ്വകലാശാല ഹൈസ്കൂൾ ശാസ്ത്ര അധ്യാപികയായ നജ്മ ടീച്ചർ ശാസ്ത്ര ലോകത്തിന് നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്

പാർവതി

വാര്യരുടെ പ്രധാന പ്രവർത്തന ്മേഖലയും വനിതാ ശിശു ശാക്തീകരണം തന്നെയാണ് ഞങ്ങളുടെ പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്

നാളെ വരെയാണ് സംപ്രേഷണം നിർത്തിവെയ്ക്കാൻ നിർദ്ദേശം നൽകിയത് സ്ഥിതി അത്യന്തം വഷളാകുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് സാമുദായിക സൌഹാർദ്ദം വളർത്തുന്ന രീതിയിലാകണമെന്ന് മന്ത്രാലയം പറഞ്ഞു

എമ്മും കോൺഗ്രസും വിമർശിച്ചു

സി ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സിനെ നേരിടും വൈകീട്ട് ആറിന് കോഴി ക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം പ്രീമിയർ ലീഗിൽ ആദ്യ മായാണ് ഇരുടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്

കാലിക്കറ്റ് സർവ്വകലാശാല വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു

അനുയോജ്യമായ കാലാവസ്ഥയും മൾബറി കർഷകരുടെ ഉത്പാദനക്ഷമതയും കൊക്കൂൺ വിപണന സൌകര്യവും കണക്കിലെടുത്താണ് വയനാട് പദ്ധതിയിൽ സ്ഥാനം പിടിച്ചത്

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ മാട്ടൂലിൽ കടലിൽ കുടുങ്ങിയ ബോട്ടിലെ യാത്രക്കാരെ തീര ദേശ പൊലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് രക്ഷപ്പെടുത്തി

രദ്ദേഷ്ടങ ഗവേഷണരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകുന്ന കേരളീയർക്ക് അംഗീകാരവും പ്രോത്സാഹനവും നൽകുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയ കൈരളി പുരസ്കാർങ്ങൾ പ്രഖ്യാപിച്ചു പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശേരി രാമചന്ദ്രൻ എന്നിവരാണ് പ്രഥമ പുരസ്കാ രങ്ങൾക്ക് അർഹരായതെന്ന് മന്ത്രി ഡോക്ടർ കെ

പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും തുപ്പു ന്നത് പൊലീസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ് രുട്ട്ട്ട്ട്ട്ട്ട്ട ബേപ്പൂർ തുറമുഖത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്ക ണമെന്നും ഡ്രെഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്നും ബേപ്പൂർ പോർട്ട് ഡവലപ്പ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു